ഭിക്കും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക ഏറെ പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർഹരല്പാത്ത ഒരാളും റേഷൻ മുൻഗ്ണനാപട്ടികയിൽ ഇടം നേടില്ലെന്ന് മന്ത്രി പി തിലോത്തമൻ കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം തീർക്കാൻ യു ഡി എഫ് ഇടപെടു മെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അന്തർസംസ്ഥാന ബസ് സർവീസുകൾ അനിശ്ചിത കാല ത്തേക്ക് നിർത്തിവെച്ചു ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ട ദക്ഷിണാഫ്രിക്ക സെമി

രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിൽ ഇന്ന് ആരം ഭിക്കും ലോക്സഭയിൽ കേന്ദ്രമന്ത്രി പ്രതാപ് ചന്ദ്ര സാരംഗിയും രാജ്യസഭയിൽ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ധയും നന്ദിപ്രമേയം അവതരിപ്പിക്കും ആധാർ ഭേദഗതി ബിൽ ലോക്സഭയിൽ നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഇന്ന് അവ തരിപ്പിക്കും ഓർഡിനൻസിന് പകരം ബില്ലാണ് അവതരിപ്പിക്കുന്നത് പാർലമെന്റിൽ പാസാക്കാൻ കഴിയാതിരുന്ന രണ്ട് ബില്ലുകൾ കേന്ദ്ര മന്ത്രിസഭ ഇന്ന് പരിഗണിക്കും പ്രവാസി ഇന്ത്യക്കാർക്ക് പകരം ആളെ ഉപയോ ഗിച്ച് വോട്ട് ചെയ്യുന്നതിന് അവസരം നൽകുന്ന ബില്ലും ഡി എൻ എ സാങ്കേതിക വിദ്യ നിയന്ത്രണ ബില്ലുമാണ് മന്ത്രിസഭ പരിഗണിക്കുന്നത് പ്രവാസി ഇന്ത്യക്കാർക്ക് പ്രോക്സി വോട്ട് അനുവദിക്കുന്ന ബിൽ കഴിഞ്ഞ ലോക്സഭയിൽ അവതരിപ്പിച്ചെ ങ്കിലും സഭ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ലാപ്സാവുകയായിരുന്നു മൂന്നു കോടി പത്തുലക്ഷം ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിലായി താമസിക്കുന്നുണ്ടെന്നാണ് വിദേ ശകാര്യ മന്ത്രാലയം കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ പന്തീരായിരത്തോളം പേർ മാത്രമാണ് വോട്ടവകാശം വിനിയോഗിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പു കമ്മീഷന്റെ അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് സാമ്പത്തിക പ്രയാസം കാരണം പലർക്കും രാജ്യത്ത് വന്ന് വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹച ര്യത്തിലാണ് പ്രോക്സി വോട്ട് അനുവദിക്കുന്നത് ദേശീയ ഡി എൻ എ ഡാറ്റാ ബാങ്കും പ്രാദേശിക ഡി എൻ എ ഡാറ്റാ ബാങ്കുകളും രൂപീകരിക്കുന്നതിനാണ് ഡി എൻ എ സാങ്കേതിക വിദ്യാ നിയന്ത്രണ ബിൽ കൊണ്ടുവരുന്നത് ബിൽ ജനുവരി യിൽ ലോക്സഭ പാസാക്കിയെങ്കിലും പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് രാജ്യസഭ യിൽ പരാജയപ്പെട്ടിരുന്നു എൻ ഐ എയ്ക്ക് കൂടുതൽ അധികാരം നൽകുന്ന തിന് എൻ ഐ എ നിയമവും യു എ പി എയും ഭേദഗ്തി ചെയ്യുന്ന ബില്ലുകളും മന്ത്രിസഭ പരിഗണിക്കും

ജെസോൾ ഗ്രാമത്തിൽ ക്ഷേത്രത്തിനടുത്ത സ്കൂൾ ഗ്രൌണ്ടിൽ രാമകഥാപരിപാടി നടക്കുന്നതിനിടെയായിരുന്നു അപകടം മരിച്ചവ രുടെ കുടുംബങ്ങൾക്ക് അഞ്ചുലക്ഷം രൂപ വീതം നൽകുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു ദുരന്തത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും ഉൾപ്പെടെ നേതാ ക്കൾ അനുശോചിച്ചു ഉത്തരാഖണ്ഡിലെ നന്ദാദേവി കൊടുമുടിയിൽ നിന്ന് ഇന്തോ തിബ റ്റൻ അതിർത്തി പൊലീസ് ഏഴു മൃതദേഹങ്ങൾ കണ്ടെടുത്തു

തിരുവനന്തപുരം കോട്ടൂർ കാപ്പു കാട് ആന പുനഃരധിവാസ കേന്ദ്രം അന്തർദേശീയ നിലവാരത്തിലേക്കുയർത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യ മന്ത്രി ജനപങ്കാളിത്തത്തോടെ ജനങ്ങളും വന്യമൃഗങ്ങളുമായി സംഘർഷം ലഘൂ കരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

തിലോത്തമൻ ചേർത്തലയിൽ പറഞ്ഞു ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തോളം അനർഹരെ ഒഴിവാക്കി യിട്ടുണ്ട് മുഴുവൻ അനർഹരേയും ഒഴിവാക്കുംവരെ പരിശോധന തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം തീർക്കാൻ യു ഡി എഫ് ഇടപെ ടുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു കഴിയുമെങ്കിൽ ഇന്നു തന്നെ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തുമെന്ന് അദ്ദേഹം മലപ്പുറം തേഞ്ഞി പ്പലത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം പി

ജോസഫുമായും ചർച്ച നടത്തിയെന്നും കെ എം മാണി യോജിപ്പിച്ച പാർട്ടി യോജിപ്പോടെ പോകണമെന്നാണ് യു ഡി എഫ് നിലപാടെന്നും ചെന്നിത്തല പറഞ്ഞു

രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയും സംഘപരിവാറും ഇന്ത്യൻ ജനാ ധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഭീഷണി ഉയർത്തിക്കഴിഞ്ഞതിന്റെ പശ്ചാത്തല ത്തിലാണ് ദിനാചരണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീ കരിച്ച പ്രമേയം വ്യക്തമാക്കി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും

കണ്ണൂർ ആന്തൂരിൽ പ്രവാസി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നഗരസഭ അധ്യക്ഷ രാജിവെക്കണമെന്നും മരണത്തിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും മുല്ലപ്പള്ളി കോഴിക്കോട്ട് പറഞ്ഞു

മോട്ടോർ വാഹന വകുപ്പ് ബസ് വൃവസായത്തെ തകർക്കുന്നുവെ ന്നാരോപിച്ച് ഇന്റർ സ്റ്റേറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനാണ് സമരം പ്രഖ്യാ പിച്ചത്

ഈ ലോകകപ്പിൽ രണ്ടാം ജയത്തോടെ പ്പാകിസ്ഥാൻ അഞ്ചു പോയിന്റുമായി ഏഴാം സ്ഥാനത്തേക്ക് കയറി ഇന്ന് ബംഗ്ലാദേശ് അഫ്ഗാനി സ്ഥാനെ നേരിടും ഉച്ചയ്ക്ക് മൂന്നിനാണ് മത്സരം എഫ് ഐ എച്ച് വനിതാ ഹോക്കി സീരീസ് കിരീടം ഇന്ത്യക്ക്

കിരീടം നേടിയ ഹോക്കി വനിതാടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അനുമോദിച്ചു ഈ വിജയം ഹോക്കിയുടെ പ്രചാരം കൂടുതൽ വർദ്ധിപ്പിക്കു മെന്നും പെൺകുട്ടികൾ കായിക രംഗത്തേക്ക് കടന്നുവരാൻ പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എറണാകുളം കുമ്പളം റെയിൽപാതയിൽ ഇന്നുമുതൽ പാസഞ്ചർ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജൂലായ് എട്ടുവരെ നിയന്ത്രണം തുടരും ട്രാക്ക് നവീകരണം നടക്കുന്നതിനാലാണ് ഇത് ആലപ്പുഴ വഴി പോകുന്ന എറണാകുളം കായംകുളം പാസഞ്ചർ കായംകുളം എറണാകുളം പാസഞ്ചർ എന്നിവ പൂർണമായും റദ്ദാക്കി ആലപ്പുഴ വഴി എറണാകുളം കൊല്ലം മെമു കൊല്ലം എറണാകുളം മെമു എന്നിവ തിങ്കളാഴ്ച ഒഴികെ ദിവസങ്ങളിൽ സർവീസ് നടത്തില്ല

പന്തപ്ര ആദിവാസി കുടി സന്ദർശിച്ചശേഷം സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം മഴക്കാലത്തിനുശേഷം പദ്ധതി ആരംഭിക്കുമെന്നും വീട് ഒന്നിന് ആറു ലക്ഷം രൂപ വീതം അനുവദിച്ചതായും കലക്ടർ പറഞ്ഞു സംസ്ഥാനത്തെ മെഡിക്കൽ ഡെന്റൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനത്തിന് കേരള റാങ്ക് പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ നീറ്റ് പരീക്ഷാ സ്കോർ അടിസ്ഥാന പ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കുന്നത് ഓൺലൈൻ ഓപ്ഷൻ സമർപ്പണം വ്യാഴാഴ്ച ആരംഭിക്കും അടുത്തമാസം രണ്ടുവരെ ഓപ്ഷൻ നൽകാം നാലിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും

പൊലീസ് അന്വേഷണം തുടങ്ങി കണ്ണൂർ നാർകോട്ടിക് ഡി വൈ എസ് പി പി

കൃഷ്ണദാസാണ് കേസ് അന്വേഷിക്കുന്നത് ആന്തൂർ നഗരസഭാ ചെയർപേ ഴ്സന്റെയും സെക്രട്ടറി ഉൾപ്പെടെ സസ്പെൻഷനിലായ നാല് ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഇതിനുശേഷമായിരിക്കും കേസ് എടുക്കുന്ന കാര്യം തീരുമാനിക്കുക

ഷാഫി എന്നിവരെ വിയ്യൂർ ജയിലിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ജയിലിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇവരിൽ നിന്നും മൊബൈൽ ഫോണുകൾ പിടികൂടിയ സാഹചര്യത്തിലാണ് നടപടി ഫോണുമായി ഇവർക്കൊപ്പം പിടിക്കപ്പെട്ട വാസു എന്ന തടവുകാരനെയും പൂജപ്പുരയിലേക്ക് മാറ്റിയിട്ടുണ്ട്

ഒരു പൊതി കഞ്ചാവും പിടിച്ചെടുത്തു

ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാ യിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം ജയിൽ ഡി ജിപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലും മൊബൈലുകളും മറ്റും കണ്ടെടുത്തിരുന്നു

ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗ സ്ഥരെ സ്ഥലംമാറ്റി മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച കേസിലെ പ്രതി സതീശനാണ് മർദ്ദനമേറ്റത് കസ്റ്റഡിയിലിരിക്കെ ഇയാളുടെ എല്ലുകൾക്ക് പൊട്ടലേറ്റി ട്ടുണ്ടെന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് മൂന്നാർ ഡി

വ്യക്തമാക്കി

വള്ളങ്ങൾ കൂട്ടിയിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു

ഇന്നലെ വൈകിട്ട് എലത്തൂരിൽ നിന്ന് വള്ളത്തിൽ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകവെയായിരുന്നു അപകടം

മലപ്പുറം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തകനുമായ എൻ

നത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് സമയം വർദ്ധിപ്പിച്ചു ആഭ്യന്തര യാത്രക്കാർക്ക് നാളെ മുതൽ വിമാനം പുറപ്പെടൽ സമയത്തിന് മൂന്നു മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യാം രാജ്യാന്തര യാത്രക്കാരുടെ ചെക്ക് ഇൻ കൌണ്ടറുകൾ മൂന്നു മണിക്കൂർ മുമ്പുതന്നെ പ്രവർത്തിച്ചുതുടങ്ങുമെന്ന നിലവിലെ സ്ഥിതി തുട രും

ഉണ്ടാകണമെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തക അശ്വതി ജാല പറഞ്ഞു

ആറ്റുപുറം ലത്തീഫിന്റെ വീടാണ് തകർന്നത്

അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അത് തന്റെ വ്യക്തി ജീവിതത്തിലും പൊതു ജീവിതത്തിലും ഏറ്റവും നല്ല രീതിയിൽ പകർത്തുകയും ചെയ്ത മനുഷ്യസ് നേഹി യായ നേതാവായിരുന്നു എ സുജനപാലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മുൻമന്ത്രി എ

കണ്ണൂർ പരിയാരത്തെ സിദ്ദിഖ് ആണ് പിടിയിലായത്